തെലങ്കാന നിയമസഭ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും സംഘവും ഹൈദരാബാദിലെത്തി

ലോകമെമ്പാടും ഇന്ന് ഗുരുനാനാക്ക് ജയന്തി ആഘോഷിക്കുന്നു

സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമായും പൊലീസിലെ ഉന്നതരുമായും സംഘം തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി

ഇന്ന് സംഘം ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായും എക്സൈസ് ആദായനികുതി തുടങ്ങി വിവിധ വകുപ്പ് മേധാവികളുമായും സംസ്ഥാന പോലീസ് മേധാവിയുമായും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ നടത്തും

ജെ പി ക്കുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആൽവാറിൽ ഞായറാഴ്ച പ്രചാരണം നടത്തും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി അജ്മീറിൽ തിങ്കളാഴ്ച തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും മധ്യപ്രദേശിൽ ഗർഭിണികളായ സ്ത്രീകൾക്ക് നിയമസഭ തിരഞ്ഞെടുപ്പിൽ വോട്ടുചെയ്യാൻ ക്യൂവിൽ നിൽക്കേണ്ടതില്ല എന്നും തീരുമാനമായി ശാരീരിക പ്രശ്നങ്ങൾ പരിഗണിച്ചാണ് ഇവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക പരിഗണന നൽകുന്നത് മിസോറാമിലും തിരഞ്ഞടുപ്പ് പ്രചാരണം ഊർജിതമായി

മാറ്റിപാർപ്പിക്കപ്പെട്ട ബ്രൂ വംശജർക്കുള്ള തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നടന്നുവരുന്നു

എസ് ഊഐ ്യുട്ടെ കിഴക്കൻ മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ ആർ

ഖനനം രാജ്യത്തിനും മേഖലയിലെ സംസ്ഥാനങ്ങൾക്കും ഏറെ ആദായകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്ത് സാമ്പത്തിക മെച്ചം ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കണ്ടെത്തുന്നതിനായി കഴിഞ്ഞ പത്തു വർഷക്കാലം ജി എസ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പരാമർശിക്കവെ ഇന്ത്യ വികസനത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ കോവിന്ദ് ഇന്നലെ സിഡ്നിയിൽ ഓസ്ട്രേലിയ ഇന്ത്യ ബിസിനസ് കൌൺസിലിനോട് പറഞ്ഞു

പിന്നീട് അദ്ദേഹം ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു

രണ്ടു ദിവസത്തെ സന്ദർശത്തിനായി അവർ ഇന്നലെയാണ് ലാവോസ് തലസ്ഥാനത്ത് എത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചെപ്പെടുത്ത്യൂന്ന്തിനുള്ള ഒമ്പാതാമത് ഇന്ത്യ ലാവോസ് സംയുക്ത കമ്മീഷനിൽ ശ്രീമതി

ലാവോസ് വിദേശകാര്യമന്ത്രി സലിംക്സായ് കുമ്മസിത്തുമായി അവർ കൂടിക്കാഴ്ച നടത്തും

ജസ്റ്റിസുമാരായ ബി

ധർമ്മാധികാരി സാരംഗ് കോത്ത്വാൾ എന്നിവരടങ്ങിയ ഡിവിഷൻ ബഞ്ചിന്റേതാണ് ഉത്തരവ് അടുത്തമാസം അഞ്ചിനകം ഇവർക്കെതിരായ കേസ് നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പൂനെ പോലീസിന് ബഞ്ച് നിർദ്ദേശം നൽകി കേസിൽ തനിക്കെതിരായ എഫ് ഐ ആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രവർത്തകരിൽ ഒരാൾ നവ്ലാക്ക സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി

പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരുപ്പുണ്ടെന്ന വിവരത്തെ തുട്ടർന്ന് സേന നടത്തിയ തിരച്ചിലിനിടയിലാണ് വെടിവെയ്പുണ്ടായത് സംഭവത്തിൽ ഇരുപക്ഷത്തും ആളപായം ഉണ്ടായിരുത്തിയി റിപ്പോർട്ടില്ല

ഇന്നലെ വൈകുന്നേരം സ്ഥലത്തെ ഒരു ഹാർഡ്വെയർ ഷോപ്പിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് കടയിൽ സാധനം വാങ്ങുകയായിരുന്ന ഒരാളാണ് കൊല്ലപ്പെട്ടതെന്നും കടയുടമയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റതെന്നും ശിവ്സാഗർ പോലീസ് സൂപ്രണ്ട് സുബോധ് കുമാർ പറഞ്ഞു

സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഫോടനത്തെ ശക്തമായി കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും അപലപിച്ചു അവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

റിപ്പോർട്ടിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ റവന്യൂ മന്ത്രി ചന്ദ്രകാന്ത് പാട്ടീൽ അധ്യക്ഷനായ ഏഴംഗ മന്ത്രിസഭാ ഉപസമിതിക്ക് ഗവൺമെന്റ് രൂപം നൽകി ഇത് സംബന്ധിച്ച ഉപസമിതിയുടെ തീരുമാനങ്ങൾ അന്തിമമായിരിക്കുമെന്നും മന്ത്രിസഭയുടെ അംഗീകാരം ഇതിനായി പിന്നീട് ആവശ്യമില്ലെന്നും ഇന്നലെ പൂറത്തിറക്കിയ പ്രമേയത്തിൽ ഗവൺമെന്റ് വ്യക്തമാക്കി മറാത്ത് സ്സ്മുദായത്തിന് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ ശുപാർശ ചെയ്തത് നിലവില്ലെ സംപ്പരണ നടപടിക്രമങ്ങളെ യാതൊരു വിധത്തിലും ബാധിക്കാതെ സ്മുദായികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയായിരിക്കും പുതിയ സംവരണ നയം നടപ്പിലാക്കുകയെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചു

സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുക കാർഷിക കടം എഴുതിത്തള്ളുക വരൾച്ചാ സഹായം അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സമരക്കാരുടെ പ്രതിനിധികൾ ഇന്നലെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ കണ്ട് ആവശ്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു

ഗുരുനാനാക് ദേവിന്റെ ജന്മസ്ഥലമായതിനാൽ കർതാർപൂർ പദ്ധതി സിക്ക് ജനതയ്ക്ക് പ്രയോജനം ചെയ്യുമെന്ന് പാകിസ്ഥാൻ വാർത്താ വിതരണ മന്ത്രി ചൌധരി ഫവാദ് ഹുസൈൻ അറിയിച്ചു ഇടനാഴി തുറക്കാനുള്ള ഇന്ത്യൻ തീരുമാനം ശരിയായ നടപടിയാണെന്നും പാകിസ്ഥാൻ മന്ത്രി ട്വീറ്റ് ഇത് ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ കൂടുതൽ ചെയ്തു

ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ കൂട്ടപ്രാർത്ഥനകൾ നടത്തും

സിക്ക് മതഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബിൽ നിന്നുള്ള ശ്ലോകങ്ങൾ ഭക്തർ ആലപിക്കും

ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു

ധോണി എന്നീ ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കും

മറ്റൊരു സെമിയിൽ വെസ്റ്റ് ഇൻഡീസ് ആസ്ട്രേലിയയെ നേരിടും ഞായറാഴ്ചയാണ് ഫൈനൽ മത്സരം

പരമ്പരയുടെ തുടക്കത്തിൽ നേരിയ പിഴവ് സംഭവിച്ച ഇന്ത്യൻ ടീം കളി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്